മുരളീധരൻ കോഴിക്കോട്ടുനിന്ന് ജിദ്ദയിലേക്ക് എയർ ഇന്ത്യയുടെ ജംബോ ബോയിംഗ് സർവീസ് പുനഃരാരംഭിച്ചു ശബരിമല സ്ത്രീപ്രവേശനമടക്കം വിഷയങ്ങളിൽ സുപ്രീം കോടതി

സംസ്ഥാനതതല പഞ്ചായത്ത് ദിനാഘോഷത്തിന് ഇന്ന് വയനാട്ടിൽ തുടക്കമാകും

വനം ട്രൈബൽ വാച്ചറായ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ കെ

ദിവാകരൻ താൽക്കാലിക വാച്ചർമാരായ വടക്കാഞ്ചേരി കൊടുമ്പ് സ്വദേശികളായ വേലായുധൻ ശങ്കരൻ എന്നിവരാണ് മരിച്ചത് രണ്ടുപേർ സംഭവസ്ഥലത്തും ശങ്കരൻ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത് പരിക്കേറ്റ ഒരാൾ ചികിത്സയിലാണ് ചെറുതുരു ത്തിക്ക് സമീപം പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ്പ്രിന്റ് ലിമിറ്റഡിന്റെ അക്കേഷ്യ പ്ലാന്റേഷനിലാണ് തീപിടുത്തമുണ്ടാ യത് വനം വകുപ്പിൽ നിന്ന് എച്ച് എൻ എൽ പാട്ടത്തിനെടുത്ത സ്ഥലമാ ണിത് മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു തീ അണയ്ക്കാൻ പോയ താൽക്കാലിക ജീവന ക്കാർ ഉൾപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടുതീ അണയ്ക്കുന്ന തിനിടെ മൂന്ന് വാച്ചർമാർ മരിച്ച സംഭവത്തിൽ മന്ത്രി കെ

മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പ്രിക്കേറ്റവർക്കും സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

വനം വകുപ്പിന്റെ അഗ്നി ശമന സംവിധാന വാഹനങ്ങളും ഫയർഫോഴ്സ് സംഘവും തീ അണയ്ക്കാൻ ശ്രമിച്ചുവരുന്നു വനം വകു പ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അഗ്നിശമനം ഉദ്യോഗസ്ഥരും സംഭവസ്ഥ ലത്തുണ്ട്

മുരളീധരൻ അറിയിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ പുനഃരാരംഭിച്ച ജംബോ ബോയിംഗ് വിമാനത്തിലെ യാത്ര ക്കാരെ സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വലിയ വിമാനങ്ങൾ എത്തുമ്പോൾ ഉണ്ടാ കൂന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ നടപടിയെടു ക്കും

ശബരിമല സ്ത്രീപ്രവേശനമടക്കം വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ ഒൻപതംഗ വിശാല ബഞ്ചിൽ വാദം ഇന്നാരംഭിക്കും

അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് ഉന്നയിച്ച ഏഴു ചോദൃങ്ങളാണ് വിശാലബഞ്ച് പരിഗണിക്കുന്നത് മതസ്വാതന്ത്ര്യം ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കോട്ടതികൾക്ക് എത്ര ത്തോളം ഇടപെടാനാകും തുടങ്ങിയ വിഷയങ്ങൾ ഒൻപ്പതംഗ ബഞ്ച് പരിഗ ണിക്കും ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെയാണ് വിശാലബഞ്ചിന് നേതൃത്വം നൽകുന്നത്

കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേ ഷൻ വാർഡിലുണ്ടായിരുന്ന രണ്ടുപേരെയും ഡിസ്ചാർജ്ജ് ചെയ്തു

വിലയുടെ കാര്യത്തിൽ രണ്ടു ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ചേർത്ത ലയിൽ അറിയിച്ചു എ ഐ വൈ എഫ് ചേർത്തല മണ്ഡലം സമ്മേളന ത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊച്ചി മെട്രോയുടെ തൈക്കുടം പേട്ട ഒന്നര് കിലോമീറ്റർ പാത യിൽ ഇന്നലെ നടത്തിയ പരീക്ഷണ ഓട്ടം വിജയകരമായിരുന്നുവെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഫേസ് ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മെട്രോ ആദ്യ ഘട്ടത്തിന്റെ അവസാനഭാഗം കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാ യിരുന്നു ട്രയൽ റൺ

ഐ എസ് എൽ ഫുട്ബോളിൽ എ ടി കെ ക്കെതിരെ ചെന്നൈയിൻ എഫ് സിക്ക് ജയം ഒന്നിനെതിരെ മൂന്നു ഗോളുകൾക്കാണ് കൊൽക്കത്തയിൽ ചെന്നൈയിന്റെ ജയം അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റിന് രണ്ടാം സ്ഥാനം ആതിഥേയരായ അണ്ണാ മല സർവകലാശാലയാണ് ജേതാക്കൾ

രാവിലെ കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിന്റെ പുതിയ ഇരുനില കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും എസ് എൻ സഹകരണ ആശുപത്രിയുടെ നാലാംഘട്ട സമർപ്പണവും ക്യാൻസർ സെന്ററിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിക്കും

ട്രൈബൽ വാലി കാർഷിക പദ്ധതി മലക്കപ്പാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി പ്രകൃതിയെ ആശ്രയിച്ചും പരമ്പരാഗത വിത്തുകൾ ഉപയോഗി ച്ചുമായിരിക്കും പദ്ധതിയിലെ കൃഷി

വൈത്തിരി വില്ലേജ് റിസോർട്ട് കല്പറ്റ എസ് കെ എം ജെ സ്കൂൾ എന്നിവിടങ്ങളിൽ മൂന്നു ദിവസമാണ് ദിനാഘോഷം സംഘടിപ്പി ക്കുന്നത് നാളെ രാവിലെ വൈത്തിരി റിസോർട്ടിൽ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും

രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷ മാണ് ആളുകൾ വിവരം അറിഞ്ഞത് കല്ലാർ ടണലിലെ തൊഴിലാളികളായ ആതിരപ്പള്ളി സ്വദേശി രാജേഷ് നെടുമങ്ങാട് സ്വദേശി പുഷ്പാംഗദൻ എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും

നാളെ വൈകിട്ട് മന്ത്രി കെ

ശൈലജ കലോത്സവം ഉദ്ഘാടനം ചെയ്യും

അഴിമതി രഹിത ഗവൺമെന്റെന്ന ഇടതുഗവൺമെന്റിന്റെ മുഖംമൂടി സി എ ജി റിപ്പോർട്ട് വലിച്ചു കീറിയതായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആലപ്പുഴയിൽ അഭിപ്രായപ്പെട്ടു കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻപോലും കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ഗവൺമെന്റെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പദയാത്രയ്ക്ക് കുട്ടനാട്ടിൽ നൽകിയ സ്വീക രണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാണ്ടി

വൈകിട്ട് മൂന്നിന് പയ്യോളിയിൽ നിന്നാരംഭിക്കുന്ന യാത്ര വടകരയിൽ സമാ പിക്കും പൊതുസമ്മേളനം ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി

കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും

എ ഐ ടി യു സിർസംസ്ഥാന പ്രസിഡന്റ് ജെ ഉദയഭാനു കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

വനം എക്സൈസ് പൊലീസ് റവന്യൂ പട്ടിക വർഗ്ഗ വകുപ്പുകൾക്കെതിരെയായിരുന്നു അധികം പരാതിക ളും

കയ്യേറ്റ സ്ഥലത്തെ കെട്ടിടം കലക്ടർ നേരിട്ടെത്തി സീൽ ചെയ്തു